കരുത്തുറ്റ സാമ്പത്തിക ശക്തിയാകാൻ കഴിയൂ എന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്

ശ്രീകാന്തും സൈന നെഹ്വാളും പി

തിരുവനന്തപുരത്ത് തുടക്കം

ന്യൂഡൽഹിയിൽ ആകാശവാണി സംഘടിപ്പിച്ച സർദാർ പട്ടേൽ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക മുന്നേറ്റത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രഗവൺമെന്റിന്റെ ഡിജിറ്റൽ സാങ്കേതിക പദ്ധതി ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിന് പ്രധാന ശക്തിയാകുമെന്ന് ശ്രീ ഡോവൽ കൂട്ടിച്ചേർത്തു ശക്തവും ഉറച്ചതും നിശ്ചയദാർഢ്യവുമുള്ള ഒരു ഗവൺമെന്റാണ് വരുന്ന പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു

ആന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹാരയിലുണ്ടായ വെടിവെപ്പിൽ നാല് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ബരാമുളളയിൽ സുരക്ഷാഉദ്യോഗസ്ഥരുടെ വെടിവെപ്പിൽ രണ്ട് ലഷ്ക്ക്ർ ഇ തോയിബാ തീവ്രവാദികളും കൊല്ലപ്പെട്ടു ജനവാസ്ക് മേഖ്ലയിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന രഹ്സ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്

ചിദംബരത്തിനും മറ്റ് എട്ട് പേർക്കുമെതിരെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കോടതിയിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു

ചിദംബരത്തിന്റെ അക്കൌണ്ടന്റ് ഭാസ്കരരാമനേയും കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് കളളപണം വെളുപ്പിക്കൽ കേസിലാണ് മുൻ ധനകാര്യ മന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകനുമെതിരെ കുറ്റം ആരോപിക്കപ്പെടുന്നത്

ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് അന്വേഷിക്കുന്നത്

നാഗേശ്വരറാവുവിനെ ഇടക്കാല മേധാവിയായി അവരോധിക്കുകയും ചെയ്ത കേന്ദ്രനടപടിയ്ക്കെതിരെ സി ബി ഐ ഡയറക്ടർ അലോക് വർമ ഫയൽ ചെയ്ത ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ബി ഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനാ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ക്കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഗവൺമെന്റിതര സംഘടന സമർപ്പിച്ച ക്ടേസും കോടതി ഇതോടൊപ്പം പരിഗണിക്കും

സദാശിവം കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി ശബരിമലയിലെ യുവതിപ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഗവർണർ ശ്രീ രാജാനാഥ് സിംഗുമായി ചർച്ച നടത്തി

പ്രളയദുരന്തത്തെ തുടർന്നുണ്ടായ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഗവർണർ വിശദീകരിച്ചു

പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചുകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖ്ലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേയുമായും ശ്രീ

പ്രതിരോധം സുരക്ഷ ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടോക്കിയോവിൽ ഇന്ത്യൻ സമൂഹത്തെയും വ്യാപാരികളുടെ സമ്മേളനങ്ങളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

രണ്ടാം ഘട്ടത്തിലേക്കുളള തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും

അടുത്ത മാസം രണ്ടിന് ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുളള അവസാന ദിനം നവംബർ അഞ്ചാണ് പത്രിക പിൻവലിക്കാനുളള അവസാന ദിനം

എസ് ആർ

ആർ ഒ ശ്രമങ്ങൾ ഊർജ്ജിതമാക്കിയതായി ചെയർമാൻ കെ

അടുത്ത ആറ് മാസ്ങ്ങൾക്കിടെ മൂന്ന് മുതൽ ആറ് ദൌത്യങ്ങൾ വരെ നടപ്പിലൂക്കിനുള്ള ശ്രമത്തിലാണ് ഐ എസ് ആർ

വാർത്താവിനിമയം ബഹിരാകാശ്ശ ശാസ്ത്രം ജലപര്യവേഷണം എന്നീ മേഖലകളിൽ ഐ എസ് ആർ ഒ രാജ്യസേവനത്തിലാണെന്നുും ഓരോ ഭാരതീയനും ഇതിന്റെ സേവനം പ്രയോജന്പ്പെടുമെന്നും ശ്രീ

എസ് ഡാറ്റാ കണക്റ്റിവിറ്റി ്സാധ്യമാക്കുന്ന നാല് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഐ എസ് ആർ

ഇതിൽ ആദ്യത്തേത് ഈ വർഷം വിക്ഷേപിച്ചതായും അവശേഷിക്കുന്നവ അടുത്ത വർഷം നവംബർ ഡിസംബർ കാലയളവിൽ വിക്ഷേപിക്കാനാവുമെന്നും ചെയർമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എം അവാർഡിനായി കേന്ദ്ര ഗവൺമെന്റ് എൻട്രികൾ സമർപ്പിച്ചിരുന്നു

എ

എ എം അവാർഡ് നൽകി വരുന്നത്

തലസ്ഥാനമായ ഗുവഹാത്തിയിൽ രണ്ടാമത് ഗുവാഹത്തി അന്താരാഷ്ട്ര ചലചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ബ്രഹ്മപുത്ര നദിയുടേയും ബരാക് താഴ്വരയുടേയും പ്രകൃതി ഭംഗി പ്രതിഫലിപ്പിക്കുന്നതാണ് ചിത്രമെന്ന് അദ്ദേഹം എടുത്തുപറഞ്ഞു

ശ്രീകാന്തും സൈനനെഹാളും പി

ശ്രീകാന്ത്ജപ്പാന്റെ കെൻന്റോ മോമോറ്റയാണ് നേരിടു്ന്നത് സൈന ചൈനിസ് തായ്പേയ് താരം താ ത്സൂയിങിനെയും പി

ഇന്നലെ നടന്ന രണ്ടാം റൌണ്ട് മത്സരങ്ങളിൽ സൈന ചൈനയുടെ നവോമി ഒക്കു ഹാരയേയും സിന്ധു ജപ്പാന്റെ തന്നെ സയാന സാട്ടോയേയുമാണ് പരാജയപ്പെടുത്തിയത് ശ്രീകാന്ത് ദക്ഷിണ കൊറിയയുടെ ലീ സോങ് കെന്നിനെ പരാജയപ്പെടുത്തിയാണ് കാർട്ടറിൽ കടന്നത്

മത്സരത്തിലെ ഏക ഇന്ത്യൻ പ്രതീക്ഷയാണ് സൌരവ് സെമിയിൽ മുൻ ലോക ചാമ്പ്യൻ ഡേവിഡ് ക്രൂസിയറിനെയാണ് സൌരവ് നേരിടുന്നത്

പ്രളയത്തെ തുടർന്നുള്ള ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഔദ്യോഗിക ഉദ്ഘാടനവും മറ്റ് ആർഭാടങ്ങളും ഒഴിവാക്കിയാണ് ഈ വർഷത്തെ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത്

മേളയിൽ ഉത്തേജക മരുന്നിന്റെ ദുരുപയോഗം നിരീക്ഷിക്കാൻ ദേശീയ ഉത്തേജക മരുന്ന് വിരുദ്ധ ഏജൻസി പ്രതിനിധികൾ എത്തുമെന്നും അധികൃതർ അറിയിച്ചു കായികമേളയിലുടനീളം ഹരിതചട്ടം പാലിക്കും മേള ഞായറാഴ്ച സമാപിക്കും

ളക്കാളംബോയിൽനിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഇരുന്നൂറോളം കപ്പൽ സ്ർവീസുകൾ നടത്തുന്ന എക്സ്പ്രസ് സീഡേഴ്സ് സീനിയർ ഡയറക്ടർ നെൽസൻ സെക്കേറയുമായി കൊല്ലത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്